കര വ്യോമ സേനകൾക്ക് ഉപഗ്രഹം പ്രയോജനകരമാകും

എസ് ആർ ഒ

കേന്ദ്രമന്ത്രി ഹൻസ്രാജ് അഹിർ ലോക്സഭയിൽ സമർപ്പിച്ച മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്

തികച്ചും നിഷ്പക്ഷവും സുതാര്യവും സസൂക്ഷ്മവുമായാണ് പൌരത്വ രജിസ്ട്രേഷൻ പുതുക്കുന്നതെന്നും ഒരു ചോദ്യത്തിന് മറുപടിയായി കേന്ദ്രമന്ത്രി വൃക്തമാക്കി

രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പൊൻരാധാകൃഷ്ണനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്

ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനത്തിലും കാര്യമായ വർധനയുണ്ടെന്ന് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് പുറത്തിറക്കിയ കണക്കുകൾ വ്യക്തമാക്കുന്നു

ബംഗളൂരുവിൽ കസ്റ്റംസ് കമ്മീഷണർമാരുടെയും ഡയറക്ടർ ജനറൽമാരുടെയും ദ്വിദിന സമ്മേളനത്തിർണ്ണ് സമാപനത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ്അദ്ദേഹം

ഇതോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി നടത്തുന്ന പരിപാടികൾ ഒരു വർഷം നീണ്ടു നിൽക്കും രാജ്യസഭയിൽ സാംസ്കാരിക സഹമന്ത്രി മഹേഷ് ശർമ്മ എഴുതി നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ശതവാർഷികത്തോടനുബന്ധിച്ച് പഞ്ചാബിലെ അമൃത്സറിലുള്ള ജാലിയൻ വാലാബാഗ് സ്മാരകം നവീകരിക്കും

ശബരിമല സന്നിധാനം ഘമ്പ് നിലയ്ക്കൽ ഇലവുങ്കൽ പ്രദേശങ്ങളിൽ പ്രഖ്യാപ്പിച്ചിട്ടുള്ള നിരോധനാജ്ഞയുടെ കാലാവധി ഇന്നലെ അർധരാത്രി അവസാനിക്കാനിരിക്കെയാണ് ദീർഘിപ്പിച്ച് പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉത്തരവിട്ടത് ഇലവുങ്കൽ മുതൽ സന്നിധാനം വരെയുള്ള പ്രദേശങ്ങളിൽ നിയമവിരുദ്ധമായി സംഘം ചേരുന്നതിനും പ്രകടനം വഴിതടയൽ പൊതുയോഗം എന്നിവ നടത്തുന്നതിനും വിലക്കുണ്ട് അയ്യപ്പഭക്തർക്ക് ഒറ്റയ്ക്കോ കൂട്ടമായോ എത്തുന്നതിനും ശരണം വിളിക്കുന്നതിനും തടസമില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കി

ചീഫ് സെക്രട്ടറി ചെയർമാനും ഗതാഗത ധനസെക്രട്ടറിമാർ ഡയറക്ടറുമാരുമായാണ് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ടിയാൽ രൂപീകരിക്കുക തിരുവനന്തപുരമടക്കം ആറ് വിമാനത്താവളങ്ങളെ പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ വികസിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നു

ഡിജി ലോക്കർ എം പരിവാഹൻ തുടങ്ങിയ ആപ്പുകളിൽ സൂക്ഷിച്ചിട്ടുള്ള ഡിജിറ്റൽ രേഖകൾ അംഗീകരിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു

ദിബാങ് ലോഹിത് നദികൾക്ക് കുറുകെയുള്ള പാലവും ചൌഖം ദിഗരു അപ്പോച്ച് റോഡും ശ്രീ

അരുണാചൽ മുഖ്യമന്ത്രി പേമാ ഖണ്ഡു കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും

കനത്ത മഞ്ഞും പുകയും തണുത്തുറഞ്ഞ കാലാവസ്ഥയാണ് രാജ്യ തലസ്ഥാനത്ത്

നിരവധി പരിപാടികളാണ് സ്ഥാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഒരുക്കൂിയ്ടിരിക്കുന്നത്

പളനിസ്വാമി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയ്ക്ക് നന്ദി പറഞ്ഞു മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ ദീർഘകാലത്തെ സ്വപ്നമായിരുന്നു എയിംസ്

തമിഴ്നാട്ടിലും തെലങ്കാനയിലും ഓരോ എയിംസ് സ്ഥാപിക്കുന്നതിന് കേന്ദ്ര ക്യാബിനറ്റ് തിങ്കളാഴ്ച അംഗീകാരം നൽകിയിരുന്നു